ബസ് ഗതാഗതം നാളെ പൂർണ മായും പുനസ്ഥാപിക്കാൻ കെ

സി തയ്യാറെടുക്കു ന്നു

ഏഷ്യൽ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ഒരു വെള്ളി കൂടി വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ച അർഹരായ എല്ലാ വർക്കുംഗവൺമെന്റ് സഹായം നൽകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേ ഖരൻ അറിയിച്ചു ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ എത്തിയവർക്കു മാത്രമാണ് സഹായമെന്ന പ്രചാരണം ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു നാശനഷ്ടത്തിന്റെ കണക്ക് പരിശോ ധിച്ച് ക്യാമ്പിലെത്തിയവർക്കും അല്ലാത്തവർക്കും സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

പ്രളയക്കെടുതിയിൽ നഷ്ടപ്പെട്ട എസ് എസ്

സി സർട്ടി ഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ സ്കൂളുകൾ വഴി നൽകുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു

പുസ്തകം നഷ്ടപ്പെട്ടവർക്ക് ഉടൻ പുസ്തകങ്ങൾ നൽകുന്നതിന് നടപടികൾ തുടങ്ങിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ പ്രെളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വിഎസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കേരളജനത ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൽ സമ്മർദം ചെലുത്തണം വികസനത്തിന്റെ അതിർവരമ്പുകൾ നേർത്ത് ഇല്ലാതാകുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രളയക്കെടുതിയിലെ രക്ഷാപ്രവർത്തനം പോലെ പുനരധിവാ സവും മികച്ചതാവണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു പുനരധിവാസത്തിന്റെ കാര്യത്തിൽസ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താലേഖക രോട് പരഞ്ഞു പ്രളയക്കെടുതി നേരിടാൻ കേരളം ഒരുമിച്ച് നിന്നു വെന്നും മികച്ച സേവനമാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയ തെന്നും ചെന്നിത്തല പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഗവൺമെന്റ് ഏകോപനം കുറവായിരുന്നുവെന്നും അദ്ദേഹം കുറ്റ പ്പെടുത്തി ക്യാമ്പുകളിൽ രാഷ്ട്രീയം ഒഴിവാക്കണമെന്നും ചില ക്യാമ്പുകളിൽ ഇത് സംഘർഷത്തിന് കാരണമായിട്ടുണ്ടെന്നും പ്രതി പക്ഷനേതാവ് പറഞ്ഞു എറണാകുളം പറവൂർ കുത്തിയതോടിൽ പള്ളിക്കെട്ടിടം തകർന്ന് മരിച്ചവരിൽ നാല് പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സെന്റ് സേവ്യേർസ് പള്ളിയിൽ അഭയം തേടിയ ആറ് പേരാണ് വെള്ളത്തിൽ വീണത് ഇവരിൽ രണ്ട് പേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു

പാലക്കാട് ഒലവക്കോട് റെയിൽവെസ്റ്റേഷന് സമീപത്തുനിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടുകിട്ടി

ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രളയം വൻ നാശം വിതച്ച ചെങ്ങന്നൂരിൽ രക്ഷാപ്രവർത്തനം ഇന്ന് പൂർത്തിയാകും ഇവിടെ അപകടാവസ്ഥയിൽ ആരും ഇല്ലെ ന്നാണ് ഇപ്പോഴത്തെ വിവരമെന്ന് അഡീഷണൽ സെക്രട്ടറി പി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ക്യാമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോവൽ ശ്രമകരമായ ദൌത്യമാണെന്നും എല്ലാവരും സഹ കരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തൃശൂരിലെ ആറാട്ടുപുഴയ്ക്കു സമീപം എട്ടുമന ഇല്ലിയ്ക്കൽ ബണ്ട് തകർന്നു ഇതോടെ എട്ടുമന ഗ്രാമം വെള്ളത്തിനടിയിലായി പ്രദേശത്തുള്ളവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തളിക്കുളം ചേർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുക്കണക്കിന് വീടുകൾ ദുരിതക്കയത്തിലാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടിൽ നിന്ന് പുറത്തേക്കൊഴു ക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു ഇടുക്കി ജില്ലയിൽ മഴ കുറ ഞ്ഞതും സംഭരണിയിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതും കണ ക്കിലെടുത്താണ് നടപടി ഇപ്പോൾ സെക്കന്റിൽ ആറ് ലക്ഷം ലിറ്റർ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്

അഞ്ചെണ്ണം അരയടി വീതം മാത്രമാണ് തുറന്നിരിക്കുന്നത്

സംസ്ഥാനത്തേക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ട്രെയിനിലും റോഡ് മാർഗവും കൊണ്ടുവരുന്നു ണ്ട് സംസ്ഥാനത്ത് ദീർഘദൂര ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ സാധാരണ നിലയിലായി ഷൊർണൂർ എറണാകുളം റൂട്ടിൽ ട്രെ യിൻ സർവീസ് പുനഃരാരംഭിച്ചു

നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് മംഗളൂർ നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് ജംനഗർ തി രുനെൽവേലി എക്സ്പ്രസ് ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് എന്നിവ സാധാരണ സമയക്രമം പാലി ക്കുന്നതായി റെയിൽവെ അറിയിച്ചു

ആലുവ പറവൂർ എറണാകുളം പറവൂർ ആലപ്പുഴ ചങ്ങനാശ്ശേരി കുട്ടനാട് അപ്പർകുട്ടനാട് ഹൈറേഞ്ച് മേഖലകളിലാണ് ഗതാഗതം ഇനിയും ആരംഭിക്കാൻ കഴിയാത്ത ത് എറണാകുളം തൃശൂർ ദേശീയപാതയിൽ ഗതാഗതം പുനസ്ഥാപിച്ചിട്ടുണ്ട് നാളെ മുതൽ എല്ലാ സർവീസുകളും പുന സ്ഥാപിക്കാൻ കെ എസ്

സി തയ്യാറെടുത്ത് വരികയാണ് മഴ കുറഞ്ഞതോടെ മലപ്പുറം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി

താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം പിൻവാങ്ങിയതോടെ ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമായി കുടിവെള്ളത്തിന് പലയിടങ്ങളിലും ക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്

ജില്ലയിലെ ഏഴ് താലൂക്കുകളെ കാലവർഷക്കെടുതി ബാധിച്ചു ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ വീടുകളിലേക്ക് തിരിച്ച് പോകും മുമ്പ് വീടും പരിസരവും ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സുരക്ഷിതമാക്കാൻ ജില്ലാ കലക്ടർ നിർദേശം നൽകി ഒരാഴ്ച തുടർച്ചയായി ജല സൃതോസ്സുകളെ ക്ലോറിനേഷൻ ചെയ്യണമെന്നും നിർദേശമുണ്ട്

പ്രളയക്കെടുതി അനുഭവിക്കുന്നവർക്കായി ഭക്ഷ്യസാധനങ്ങളും മറ്റും എത്തിക്കുന്നതിന് കണ്ണൂർ കലക്ടറേറ്റിൽ വിപുലമായ സംവി ധാനം ഏർപ്പെടുത്തി വിവിധ ഭാഗങ്ങളിൽ നിന്നായി വസ്ത്രങ്ങളും ഭക്ഷ്യാൽപ്പന്നങ്ങളും ഉൾപ്പെടെ സാധനങ്ങൾ കലക്ട്രേറ്റിൽ നിത്യേന എത്തുന്നുണ്ട്

ഈ സമയം കടൽ പ്രക്ഷുബ്സമാകാനും സാധ്യതയുണ്ട്

രാഷ്ട്രത്തിന് അദ്ദേഹം നടത്തിയ സേവനങ്ങളെ സ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറി ച്ചു തന്റെ പിതാവിന്റെ അകാലചരമം തന്റെ ജീവിതത്തിൽ വൻ വിടവ് സൃഷ്ടിച്ചുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്മരണ എക്കാലവും നിലനിൽക്കു മെന്ന് അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥല മായ വീർഭൂമിയിൽ രാവിലെ രാഹുൽ ഗാന്ധിയും മുൻ പ്രധാന മന്ത്രി ഡോ മൻമോഹൻ സിംഗും സോണിയാഗാന്ധി ഉൾപ്പെടെ നേതാക്കളും പുഷ്പാർച്ചന നടത്തി

ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനയിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് പുലർച്ചെയോടെയാണ് അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങിയത് സൂര്യാസ്തമയം വരെ അറഫയിൽ ആരാധനാ കർമങ്ങളിലും പ്രാർഥനയിലുമായി കഴിച്ചുകൂട്ടുന്ന അവർ പിന്നീട് മുസ്ദലിഫയിലേക്ക് നീങ്ങും മുസ്ദലിഫയിൽ രാപാർത്ത ശേഷം മിനായിലെത്തുന്ന ഹാജിമാർ കല്ലേറ് കർമം പൂർത്തിയാക്കും ഇത്തവണ കനത്ത ചൂടിലാണ് ഹജ്ജ് കർമങ്ങൾ നടക്കുന്നതെങ്കിലും അറഫയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിച്ചിരുന്നു

ചൈന യ്ക്കാണ് ഈ ഇനത്തിൽ സ്വർണം ഒരു സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ്